വൃക്തമായ ഭൂരിപക്ഷത്തോളട്ട് തുടർച്ചയായ രണ്ടാം തവണയും ബി ജെ

ശാരദാ ചിട്ടി ഫണ്ട് കേസിൽ കൊൽക്കത്ത മുൻ പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വിലക്ക് സുപ്രീംകോടതി നീക്കി

വായു മാർഗ്ഗ യുദ്ധ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഇടത്തരം കര വ്യോമസേന മിസൈലുകളുടെ വിക്ഷേപണത്തിൽ ഇന്ത്യൻ നാവികസേന സൂപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു

കേരളത്തിലെ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കടവൂർ ശിവദാസന്റെ ഭൌതിക ശരീരം കൊല്ലത്ത് സംസ്കരിച്ചു

മുതിർന്ന ബി ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഖാർഗോണിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു

ഹിമാചൽപ്രദേശിലെ സോളനിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്ത് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെ നടപടിയെ നിശിതമായി വിമർശിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശിലെ മിർസാപൂർ കുഷിനഗർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി ഗൊരഖ്പൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചു

ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമായ കേണൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ പിയൂഷ് ഗോയൽ എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടുന്ന വരാണാസിയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു

ഡി സംയുക്ത മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഉത്തർപ്രദേശില്പ്പൂർസാപൂറിൽ റാലി നടത്തി

ജെ പിയും കോൺഗ്രസുട് ജ്നങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതെന്ന് ്ബീ എസ് പി നേതാവ് മായാവതി പറഞ്ഞു

ജെ പി ഭരണത്തിൽ പാവപ്പെട്ടവരും താഴെക്കിടയിലുള്ളവരും അടിച്ച്മർത്തപ്പെടുകയായിരുന്നുവെന്നും അവർ ആരോപിച്ചു

പിയുടെ പ്രമുഖ നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് പഞ്ചാബിലെയും ഛണ്ടീഗട്ടിലേയും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

ഏഴ് ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിന്റെ അവസാന ദിന പ്രചാരണത്തിനും ഇന്നത്തോടെ കൊട്ടിക്കലാശമായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ബി ജെ

ജെ പി ആസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി ആയശേഷം ശ്രീ

രാജ്യത്തിന്റെ ജനാധിപത്യ ശക്തിയെ ്ലോക്ത്തിൽ എത്തിക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്ടെന്നു് വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

ഇത്തരം പ്രസ്താവനകൾ പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും സ്ഥകാര്യ വാർത്താ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഭോപ്പാൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ പ്രഗൃ താക്കൂർ നാഥുറാം ഗോഡ്സെയെ രാജൃസ്നേഹിയായാണ് വിശേഷിപ്പിച്ചത്

വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനകേസിൽ ചൌടാലയ്ക്കെതിരെ സി ബി ഐ എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു അഴിമതി നിരോധന നിയമമനുസരിച്ച് ഓം പ്രകാശ് ചൌട്ടാല അഭയ് ചൌട്ടാല അജയ് ചൌട്ടാല എന്നിവർക്കെതിരെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്

ബി ഐ അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയത്

ഐ

സത്വി പ്രഗൃ സിംഗ് താകുർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടുന്ന എല്ലാ പ്രതികളും ഹാജരാകാനാണ് നിർദ്ദേശം പ്രതികൾ കോടതിയിൽ ഹാജരാകാത്തതിൽ കോടതി അസന്തുഷ്ടി രേഖപ്പെടുത്തി നൃായമായ കാരണങ്ങളില്ലാതെ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കാനുള്ള അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നും കോടതി പറഞ്ഞു

ഇതോടെ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം രണ്ടായി വെടിവെയ്പിൽ രണ്ടു തീവ്രവാദികളും ഒരു സഹായിയും ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു

എന്നാൽ തുടർ നിയമ നടപടികൾക്കായി കോടതിയ്ക് സ്റ്മീപിക്കുന്നതിന് അദ്ദേഹത്തിന് ഏഴു ദിവസത്തെ താത്ക്കാലിക്കുള്ളവും കോടതി അനുവദിച്ചിട്ടുണ്ട്

കേസിൽ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ സിബിഐ യോട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആവശ്യപ്പെട്ടു ശാരദ ചിട്ടി തട്ടിപ്പ് കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്നു മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ

ഇടത്തരം വീക്ഷണ പരിധിയുള്ള കര വ്യോമ വേധ മിസൈൽ എം ആർ

പടിഞ്ഞാറൻ കടൽത്തീരത്ത് ഇന്ത്യൻ വ്യോമസേന കപ്പലുകളായ കൊച്ചി ചെന്നൈ എന്നിവയിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകളെ ഒരു കപ്പലിൽ നിന്നും നിയന്ത്രിച്ച് വിസ്തൃതമായ പരിധിയിലുള്ള വിവിധ ്ലേ്യാമ ലക്ഷ്യങ്ങളെ വിജയകരമായി തകർത്തു പരീക്ഷണ് വിക്ഷേപണം ഇന്ത്യൻ നേവിയും ആർ

ഒ യൂം ് ഇസ്റ്റൊയേൽ എയ്റോ സ്പേസ് ഇൻഡസ്ട്രീസും സംയുക്ത്മായാ്ണ് നടത്തിയത്

അരുണാചലിലെ കിഴക്കൻ സിയാങ് ജില്ലയിലുള്ള കോളേജ് ഓഫ് ഹോർട്ടികൾച്ചർ ആന്റ് ഫോറസ്റ്റിംഗ് കൃാംപസിലെ ചോളം കൃഷിയിലാണ് അത്യധികം വിനാശകാരിയും എളുപ്പം പടർന്ന് ആക്രമണം നടത്തുന്നതുമായ പട്ടാള പുഴുവിനെ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ട് ചെയ്തു അരി കരിമ്പ് പച്ചക്കറി ചെടികൾ എന്നിവ ഉൾപ്പെടെയുള്ള വിളകളെ വ്യാപകമായി നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ കീടമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇരട്ടിയിലധികമായി വിഭജിച്ച് പെരുകാൻ ഇവയ്ക്കാകുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു

കമ്മീഷന്റെ നടപടി ക്രമങ്ങൾ ഗവൺമെന്റ് തീരുമാനിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി പ്രസ്റ്റോൺ ടൈൻസോങ് മാർദ്യൂമപ്രവർത്തകരോട് പറഞ്ഞു

നേരത്തെ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ സ്വവസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ ജീവിതത്തിന്റെ നാനാതൂറകളിൽ ഉള്ളവർ അന്തിമോപചാരമർപ്പിച്ചു സംസ്ഥാന ഗവൺമെന്റിനുവേണ്ടി മന്ത്രി കെ രാജുവും മുഖ്യമന്ത്രിക്കുവേണ്ടി മന്ത്രി ജെ

കോൺഗ്രസ് നേതാവ് ഏ

ആന്റണി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുൻമന്ത്രി പി

ഗുരുദാസൻ ശബരിനാഥ് എൽ

എ തുടങ്ങിയ നേതാക്കൾ കടവൂർ ശിവദാസന്റെ വസതിയിലെത്തി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ ആശുപത്രിയിയിലായിരുന്നു അന്തൃം

ശ്രീലങ്കയ്ക്ക് നേരെയ്യുള്ളൂ ഭീകരരുടെ ഭീഷണി ഇന്ത്യയ്ക്കും നേരെയുള്ള ഭീഷ്ട്രണിയായി കരുതുന്നുവെന്ന് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്മ്മ്യീഷണർ തരഞ്ജിത് സിങ് സന്ധു പറഞ്ഞു ശ്രീലങ്കയിലെ ക്ലാന്റിയിൽ ബുദ്ധിസ്റ്റ് പുരോഹിതരുമായി സംസാരിച്ച ശേഷം ശ്രീ ത്രഞ്ജിത് മാധ്യമപ്രവർത്തരകരെ അറിയിച്ചതാണ് ഇക്കാര്യം

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

അക്രമ രാഹിത്യം സമാധാനം മനസ്സലിവ് സേവനം തുടങ്ങിയ മൂല്യങ്ങൾ അടങ്ങിയ ബുദ്ധന്റെ പ്രഭാഷണങ്ങൾ മാനവചരിത്രത്തെയും സംസ്ക്കാരത്തെയും വളരെയധികം സ്വാധീനിച്ചെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ഭൂമിയിലുണ്ടായ ഏറ്റവും പരിശ്രമശാലിയായ ആത്മീയ നേതാക്കളിലൊരാളായിരുന്നു ശ്രീബുദ്ധനെന്നും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അർത്ഥവത്തായ ജീവിതം നയിക്കാൻ ലോകമെമ്പാടുമുള്ള മാനവരാശിയെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നെന്നും ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു